തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നാളെ

രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം ഉയരുന്നു

മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖ് രാജിവച്ചു

ആരോപണത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് രാജി

വോട്ടെടുപ്പ് നാളെ രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം ഏഴ് മണി വരെ തുടരും മാവോയിസ്റ്റ് ഭീഷണിയുള്ള മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഏറനാട് നിലമ്പൂർ വണ്ടൂർ കൊങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ മണ്ഡലങ്ങളിൽ വൈകിട്ട് ആറുമണിവരെയാണ് വോട്ടെടുപ്പ്

കോവിഡ് പശ്ചാത്തലത്തിൽ ടൂഓരോ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒരു ബൂത്തിലെ വോട്ടർമാരുടെ പരമാ വധി എണ്ണം ആയിരമാക്കി കുറയ്ക്കുക്യും ചെയ്തിട്ടുണ്ട്

കോവിഡ് രോഗികൾക്കുപ്പ് സമ്പർക്ക പട്ടികയിലുള്ളവർക്കും അവസാന മണിക്കൂറിൽ ് ്വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്

അസമിലും പശ്ചിമബംഗാളിലും നാളെ മൂന്നാംഘട്ട വോട്ടെടുപ്പ് നട ക്കും

എട്ട് ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി പശ്ചിമബംഗാളിൽ ദേശീയ നേതാക്കളടക്കം അതിശക്തമായ പ്രചാര ണമാണ് നടത്തുന്നത് മൂന്ന് ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിൽ നാളെ വോട്ടടുപ്പ് പൂർത്തിയാവും

പൊതുജനങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പ്രവർത്തകരും ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ ജാഗ്രത ് പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു

പരിചയക്കാരെ കാണുമ്പോൾ മാസ്ക് താഴ്ത്തി ഒരു കാരണവശാലും സംസ്കൃതിക്കരുത്

കൂട്ടം കൂടി ്നിൽക്കരുത് ഷേക്ക് ഹാൻഡ് നൽകാനോ ദേഹത്ത് തൊട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്താനോ പാടില്ല

തെർമ്മൽ സ്കാനറിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നവർക്കും വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാവുന്നതാണ്

ശനി യാഴ്ച നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തെക്കുറിച്ചും അദ്ദേഹം വില യിരുത്തൽ നടത്തി സുരക്ഷാസേനയുടെ ആത്മവീര്യം പ്രധാനപ്പെട്ട താണെന്നും ജവാൻമാരുടെ വീരമൃത്യും വെറുതേയാകില്ലെന്നും ശ്രീ

മാവോയിസ്റ്റുകൾക്കെതിരായ നടപടികൾ വേഗത്തിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായ വനമേഖല യ്ക്ക് സമീപമുള്ള് സിആർപിഎഫ് ക്യാമ്പും ശ്രീ

ആക്രമണത്തിൽ പരിക്കേറ്റ ക്ലസെനികരെയും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്

മുൻ മുംബൈ പോലീസ് കമ്മീഷണർ പരംബീർ സിംഗിന്റെ പരാതിയിൽ ബോംബൈ ഹൈക്ക്ക്ട്ടെതി സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട സാഹചര്യത്തിലാണ് രാജി മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറി എന്നാൽ പരാതി അന്വേഷിക്കാനായി മഹാരാഷ്ട്ര സർക്കാർ ഉന്നതതല സമിതിയെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ കേസിൽ ഉടൻ എഫ്ഐആർ ഇടേണ്ടെന്നും കോടതി സിബിഐയോട് നിർദ്ദേശിച്ചു എന്നാൽ ഇതോടെ ഉദ്ധവ് താക്കറെ സർക്കാരിന് ഭരിക്കാനുളള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടതായി ബി ജെ പി കുറ്റപ്പെടുത്തി

വാക്സിനേഷൻ സംബന്ധിച്ച വിലയിരുത്തലുകൾക്കായി പ്രധാന മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതലയോഗം ചേർന്നിരു ന്നു കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവ ത്കരിക്കുന്നതിന് നാളെ മുതൽ പ്രത്യേക ക്യാമ്പയിൻ ആരംഭി ക്കാനും യോഗത്തിൽ തീരുമാനമായി

കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും കോവിഡ് വ്യാപനം ഉയരുകയാണ്

ഇന്ന് രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്

മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമാണ് കോവിഡ് വ്യാപനം

ന്യൂസ് ഡസ്ക് ആകാശവാണി

വിദ്യാർത്ഥികൾക്ക് പരീക്ഷാക്കാലത്ത് സമ്മർദ്ദരഹിതമായ അന്തരീക്ഷം ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം

സിബ്ബിഐ യ്ക്ക് സ്ഥിരം ഡയറക്ടറെ നിയമിക്കണമെന്നാവശൃപ്പെട്ട് കോമൺ കോസ് എന്ന എൻജിഒ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സൂപ്രീംകോടതിയുടെ ഈ പരാമർശം

നാഗേശ്വര റാവു വിനീത് ശരൺ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് എന്നാൽ സിബിഐ യിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെയാണ് ഇടക്കാല ഡയറകട്റായി നിയമിച്ചിരിക്കുന്നതെന്ന് അറ്റോണി ജനറൽ കെ

കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഒബ്സേർവർ റിസർച്ച് ഫൌണ്ടേഷനും ചേർന്ന് സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

വിദേശകാര്യ മന്ത്രി എസ്